ചൊവ്വാഴ്ച മുതൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

മഹാരാഷ്ട്ര കേരളം കർണ്ണാടക ഉത്തർപ്രദേശ് തമിഴ്നാട് ഡൽഹി ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് എന്നിവയാണ് കോവിഡ് വ്യാപനം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി തുടർച്ചയായി അവലോകനം ചെയ്ത് വരികയാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ വാക്സിൻ നിർമ്മാതാക്കൾ ഓക്സിജൻ നിർമ്മാതാക്കൾ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ പ്രമുഖർ തുടങ്ങിയവരുമായി ശ്രീ നരേന്ദ്രമോദി കൂടുക്കാഴ്ചകൾ നടത്തിയിരുന്നു

രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ സേന താത്കാലിക ആശ്ചുപത്രികൾ നിർമ്മിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

ന്യൂസ്ഡസ്ക് ആകാശവാണി

് ഓരോ പ്രദേശങ്ങളിലേയും സ്ഥിതിഗതികൾ വിലയിരുത്തി കണ്ടെയ്ന്മെന്റ് സോണൂകൾ നിർണ്ണയിച്ച് കോവിസ്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ കേന്ദ്രം കേന്ദ്രഭരണപ്രദേശങ്ങൾക്കും രോഗസ്ഥിരീകരണ നിരക്ക് പത്തു ശതമാനത്തിൽ കൂടുതലുള്ള ജില്ലകളും കിടക്കകളിൽ അറുപതു ശതമാനം രോഗികൾ ഉള്ള ആശുപത്രികളും കണ്ടെത്താനും ആരോഗ്യമന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു അങ്ങനെയുള്ള ജില്ലകളെയും ആശുപത്രികളെയും പ്രത്യേകമായി പരിഗണിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നല്കി

ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികൾ വീട്ടിൽ കർശന നിരീക്ഷണത്തിലിരുന്നാൽ മതിയാകും വീട്ടിലെ മറ്റുള്ളവർക്ക് രോഗം പിടിപെടാതിരിക്കാനായി ഇവർ റൂം കാറന്റൈൻ തന്നെ പാലിക്കണമെന്നും നിർദേശത്തിലുണ്ട്

വായുവിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുക്കുന്ന ഉപകരണമാണ് ഓക്സിജൻ കോൺസൺട്രേറ്ററുകൾ

പൊതുജന ആരോഗ്യ സംവിധാനം നേരിടുന്ന വെല്ലുവിളി മുൻനിർത്തിയാണ് തീരുമാനമെന്ന് ഭാരത് ബയോടെക് അറിയിച്ചു

നിലവിൽ വാരാന്ത്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണത്തിന് സമാനമായ ക്രമീകരണങ്ങളാവും ഈ ദിനങ്ങളിലുണ്ടാവുക ഓരോ വ്യക്തിയും സ്വയം ലോക്ക്ഡൌണിലേക്ക് പോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഓക്സിജൻ സിലിണ്ടർ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ എമർജൻസി വെഹിക്കിൾ എന്ന സ്റ്റിക്കർ പതിക്കണം ഓക്സിജൻ വാർ റൂമുകൾ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ആരംഭിക്കും ഓക് സിജൻ മൊഡ്യൂൾ തയ്യാറാക്കുകയും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ ചേർക്കുകയും ചെയ്യും സീരിയൽ സിനിമ ഷൂട്ടിംഗും തൽക്കാലം നിർത്തിവെക്കാൻ നിർദേശമുണ്ട്

സി എം ആർ അംഗീകരിച്ച ടെസ്റ്റ് കിറ്റുകൾ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ ലഭ്യമായ സാഹചരൃം വിലയിരുത്തിയാണ് പരിശോധനാ നിരക്ക് കുറച്ചത്

ഓരോ ഹാളിലും സാമൂഹിക അകലം പാലിച്ച് ഏഴ് ടേബിളുകളിൽ വീതമായിരിക്കും വോട്ടെണ്ണൽ